നാല് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും

ജെ പി സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രൻ രാവിലെ ചുമ തലയേൽക്കും അവിനാശി ബസ്സപകടത്തെപറ്റി മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേ ഷണ റിപ്പോർട്ട് ഗതാഗത കമ്മീഷണർക്ക് ഇന്ന് കൈമാറും

ഖെലോ ഇന്തൃ യൂനിവേഴ്സിറ്റി ഗെയിംസിന് കട്ടക്കിൽ ഇന്ന് തുടക്കം

വൈകി എത്തുന്നവരെ ഒരു കാരണവശാലും പരീക്ഷ എഴുതി ക്കില്ലെന്ന് പി

അഡ്മിഷൻ ടിക്കറ്റും തിരിച്ചറി യൽ രേഖയും പേനയും മാത്രമേ പരീക്ഷാ ഹാളിൽ അനുവദിക്കൂ

ജെ പി സംസ്ഥാന പ്രസിഡന്റായി കെ

രാവിലെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവെ സ്റ്റേഷ നിലെത്തുന്ന സുരേന്ദ്രനെ പ്രവർത്തകർ സ്വീകരിച്ച് തുറന്ന വാഹന ത്തിൽ പാർട്ടി ആസ്ഥാനമായ മാരാർജി ഭവനിലേക്ക് ആന്യിക്കും കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ മുതിർന്ന നേതാക്കളായ ശിവരാജ് ചൌഹാൻ എച്ച് രാജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും അവിനാശിയിലെ ബസ്സപകടത്തെ പറ്റി വിശദമായ അന്വേഷണ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് ഗതാഗത കമ്മീഷണർക്ക് കൈമാ റും ഇന്നലെ പാലക്കാട് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒയുടെ നേതൃ ത്വത്തിൽ അപകടസ്ഥലവും വാഹനങ്ങളും പരിശോധിച്ചു

കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിന് കാരണമായതെന്നാണ് സംഘത്തിന്റെ നിഗമനം അവിനാശി വാഹനാപകടത്തിൽ മരിച്ച തൃശൂർ ഒല്ലൂർ സ്വദേശി ഇഗ്നി റാഫേലിന്റെ മൃതദേഹം വൈകീട്ട് മൂന്നരയോടെ സംസ്കരിക്കും മരണമടഞ്ഞ മറ്റെല്ലാവരേയും ഇന്നലെ വൻ ജനാവലിയുടെ സാന്നി ധ്യത്തിൽ സംസ്കരിച്ചു ഇവരുടെ വീടുകളിൽ മന്ത്രിമാരായ എ സി മൊയ്തീനും സി രവീന്ദ്രനാഥും കലക്ടർ എസ് ഷാനവാസുമടക്കം പ്രമുഖർ എത്തി അന്ത്യോപചാരം അർപ്പിച്ചു വൃതൃസ്ത ചിന്താഗതികൾ വെച്ചുപുലർത്താൻ ഇന്തൃയിലേത് പോലെ മറ്റൊരു രാജ്യത്തും സ്വാതന്ത്ര്യമില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി

എന്നാൽ സ്വന്തം വിശ്വാസം മാത്രമാണ് ശരി യെന്ന ചിന്താഗതി ഉചിതമല്ലെന്നും പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും സമഭാവനയോടെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു

കോഴിക്കോട്ട് ജില്ലയിൽ അഞ്ചു പേർ മാത്രമാണ് കൊറോണാ നിരീക്ഷ ണത്തിൽ കഴിയുന്നതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇതിൽ ഒരാൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ഇന്നലെ ഒരാളെ കൂടി നിരീക്ഷണ പരിധിയിൽ നിന്നും ഒഴിവാക്കി

സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ചു നൽകുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് കെട്ടിട സമുച്ചയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ പഞ്ചാ യത്തിൽ തറക്കല്ലിടും ഗവൺമെന്റ് പദ്ധതികളുടേയും നയങ്ങളുടേയും പ്രചാർണത്തിന് പതിന ഞ്ചിന കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയതായി കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു വികസന പദ്ധതികളിലെ ഗുണഭോക്താ ക്കളുടെ അനുഭവ സാക്ഷൃങ്ങൾ കൂടുതലായി അവതരിപ്പിച്ച് സമൂഹ ത്തിൽ പ്രചാരണം നടത്തണം ഹൈദരാബാദിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴില്ലെ മാധ്യമ വിഭാഗങ്ങളുടെ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മലയാളം ഉൾപ്പെടെ എല്ലാ ഭാഷകളിലും ആകാശവാണി വെബ്സൈറ്റ് ഉടൻ ആരംഭിക്കുമെന്ന് വാർത്താ വിഭാഗം പ്രിൻസിപ്പൽ ഡയറക്ടർ ജന റൽ ഇറാജോഷി ചടങ്ങിൽ പറഞ്ഞു ഖെലോ ഇന്ത്യ യൂനിവേഴ്സിറ്റി ഗെയിംസിന് ഒഡീഷയിലെ കട്ടക്കിൽ ഇന്ന് തുടക്കമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫ റൻസിങ്ങിലൂടെ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവും കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പേർ കട്ടക്കിൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കും

ഇന്നലെ മഴയെ തുടർന്ന് കളി നേരത്തെ നിർത്തി യിരുന്നു

റെയിൽവേസിനെ അഞ്ച് സെറ്റ് നീണ്ട പോരാ ട്ടത്തിൽ കീഴടക്കിയാണ് കേരളം ചാമ്പ്യൻമാരായത്

ഇന്നലെ ഇംഫാലിൽ നടന്ന എവേ മത്സരത്തിൽ നെരോക്ക എഫ് സി രണ്ടിനെതിരെ മൂന്ന് ഗോളിനാണ് ഗോകുലത്തെ തോൽപ്പിച്ചത്

സിയുമായുമായാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റിയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ചെന്നൈയിൻ എഫ്

ലീഗിൽ നോർത്ത് ഈസ്റ്റ് യുനൈറ്റഡിനെതിരെ ഒരു മത്സരം കൂടി ചെന്നൈയിന് ശേഷിക്കുന്നുണ്ട് ഇന്ന് രാത്രി ഏഴരയ്ക്ക് ബംഗുളൂരു എഫ്

കെ കൊൽക്കത്തയെ നേരിടും

വ്യവസായ പരിശീലന വകുപ്പും സംസ്ഥാന നൈപുണ്യവികസന മിഷനായ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ മന്ത്രി ടി

ശിവരാത്രി ദിനമായ ഇന്നലെ ആയിരങ്ങൾ മണപ്പുറത്തൊരുക്കിയ ബലിത്തറക ളിൽ പിതൃതർപ്പണം നടത്തി കാലടി മണപ്പുറത്തും നിരവധി പേർ ബലിതർപ്പണത്തിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും നാളെയും കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും രാവിലെ കടമ്പൂരിലെ ഫ്ലാറ്റ് സമുച്ചയത്തിന് തറക്കല്ലിട്ടതിന് ശേഷം ധർമ്മടം മണ്ഡലം വികസന സമിതിയോഗത്തിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് ശേഷം മെരുവമ്പായി യുപിസ്കൂൾ കെട്ടിടവും കോട്ടയം മലബാർ ഫാമിലി ഹെൽത്ത് സെന്ററും ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ചാലയിലെ പുതിയ സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി തലശ്ശേരിയിൽ ഇ നാരായണൻ സ്മാരക സഹകരണ ഭവനും ഉദ്ഘാ ടനം ചെയ്യും കേരള ഫോക് ലോർ അക്കാദമി സംഘടിപ്പിക്കുന്ന പൊന്നൃത്തങ്കം പൈതൃകോത്സവം ഇന്ന് തലശ്ശേരി പൊന്ന്യത്തിനടുത്ത് ഏഴരക്കണ്ടത്ത് ആരംഭിക്കും ഐതിഹൃ പുരുഷൻമാരായ തച്ചോളി ഒതേനനും കതിരൂർ ഗുരിക്കളും കുംഭമാസം ഏഴരക്കണ്ടത്തിൽ നടത്തിയെന്ന് കരുതപ്പെടുന്ന് അങ്കത്തെ കേന്ദ്രീകരിച്ചാണ് പൈതൃകോത്സവം

പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും പൌരത്വനിയമഭേദഗതിക്കെതിരെ കടകളടച്ച് സമരം ചെയ്യുന്ന രീതിയോട് യോജിപ്പില്ലെന്ന് ഡി വൈ എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പി

അത് പ്രാദേശിക ചേരിതിരിവിന് ഇടയാക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു മൂന്നു ദിവസത്തെ കണ്ണൂർ ഇൻറർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവൽ ഇന്ന് കലക്രേറ്റ് മൈതാനിയിൽ ആരംഭിക്കും

ഇടുക്കി തൂക്കുപാലം ഹരിത ഫൈനാൻസ് തട്ടിപ്പിലെ പ്രതി രാജ്കുമാർ പൊലീസ് കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് മരിച്ച കേസിൽ അറസ്റ്റിലായ എസ് ഐ സാബുവിനെ സി ബി

നെടുങ്കണ്ടം പൊലീസ് സ്റ്റേഷനിലും പുളിയൻ മലയിലും രാജ്കുമാറിനെ എത്തിച്ച് തെളിവെടുത്തു

തെക്കുംഭാഗം സ്വദേശി തൌഫീഖ് പുക്കുളം സ്വദേശി ഷമീർ എന്നിവരാണ് മരിച്ചത് ഹരിപ്പാട്ട് ഇന്നലെ രാത്രി ഇടഞ്ഞ ആന പാപ്പാനെ ചവിട്ടി കൊന്നു

അപ്പു എന്ന ആനയാണ് പാപ്പാനെ ആക്രമിച്ചത്